ഡി

ശിവ സേ നയും ബിജു ജന താ ദളും ടി ആർ എസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു അണ്ണാ ഡി എം കെ ഗവൺമെന്റിനെ അനുകൂലിച്ചു മോദി ഗവൺമെന്റിനെതിരെ കൊണ്ടുവന്ന ആദ്യ അവിശ്വാസപ്രമേയമായിരുന്നു ഇത്

ഡി എ ഗവൺമെന്റിനുണ്ടെന്ന് വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പിന്തുണച്ച എല്ലാ കക്ഷി കൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു

പ്രമേയ ചർച്ച കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നര മണിക്കൂറോളം മറുപടി പറഞ്ഞു

രുട്ടിട്ട്ട്ട്ട്ട്ട്ട ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടി ല്ലെന്ന് പ്രധാനമന്ത്രി മറുപടി പ്രസംഗത്തിൽ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെ ട്ടു പാക് അധിനിവേശ കശ്മീരിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തെ പ്രതി പക്ഷം പരിഹസിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സായുധസേന യുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം നടപടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗ ത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ജനക്കൂട്ട ആക്രമണവും കൊലപാതകങ്ങളും മാനുഷികതയ്ക്ക് എതിരായ നടപടിക ളാണെന്നും അക്രമികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പ്രധാന മന്ത്രി പറഞ്ഞു കലാപ സംഭവങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും രാജ്യത്തിനുതന്നെ നാണക്കേടാണ് ആന്ധ്രാപ്രദേശിനെ വികസനകാര്യത്തിൽ പിന്നാക്ക സംസ്ഥാനമാക്കില്ലെന്ന് മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഉറപ്പ് നൽകി

ജെ പി അധ്യക്ഷൻ അമിത്ഷാ പ്രതികരിച്ചു നരേന്ദ്രമോദിയിലും അദ്ദേഹത്തിന്റെ വിക സന മന്ത്രത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് പ്രമേയ വോട്ടെടുപ്പിലെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം സഹിഷ്ണുതയില്ലായ്മയും വിലകുറഞ്ഞ രാഷ്ട്രീയ പ്രസംഗവുമാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ആന്ധ്രാ പ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി തെറ്റായ കണക്കുകളും കപട വാഗ്ദാനങ്ങളുമാണ് പ്രസംഗത്തിലുടനീളം പ്രകടിപ്പിച്ചതെന്ന് സി

അട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട പട്ടികവിഭാഗങ്ങൾക്ക് എതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമത്തിൽ വരുത്തിയ ഇളവുകൾക്കെതിരെ കേന്ദ്രം സമർപ്പിച്ച റിവ്യൂ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ ഇതിന് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ അറിയിച്ചു

ലോക്സഭയിൽ പ്രതിപ ക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ ചർച്ചാവേളയിലാണ് രാംവിലാസ് പസ്വാൻ ഇക്കാര്യം അറിയിച്ചത്

ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ അവർ സന്ദർശിക്കും കൊച്ചിയിലെത്തുന്ന കേന്ദ്രസംഘം വ്യോമസേനാ ഹെലികോപ്ടറിൽ രാവിലെ പത്തരയോടെ ആലപ്പുഴയിലെത്തും വെള്ള പ്പൊക്കം രൂക്ഷമായി തുടരുന്ന മേഖലകൾ നേരിൽകണ്ട ശേഷം അവർ കോട്ടയം ജില്ലയിലേക്ക് പോകും വൈകീട്ട് എറണാകുളം ജില്ലയിലെ ചെല്ലാ നവും മറ്റ് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളും അവർ സന്ദർശിക്കും മന്ത്രി വി

ആലപ്പുഴ യിലെ കുപ്പപ്പുറം ഹൈസ്കൂളിലെ ദുരിതാശ്ചാസ ക്യാമ്പും കോട്ടയത്തെ ചെങ്ങളം ഇറഞ്ഞാൽ പ്രദേശങ്ങളും സംഘം സന്ദർശിക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ആർ കെ ജെയിൻ കേന്ദ്ര ആഭ്യന്തരവകുപ്പ് ജോയിന്റ് സെക്രട്ടറി സഞ്ജീവ്കുമാർ ജിൻഡാൽ ദേശീയ ദുരന്ത നിവാ രണ സേന ഐ ജി രവി ജോസഫ് ലോക്കു എന്നിവരാണ് സംഘാംഗങ്ങൾ ഇവർക്കൊപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറി ടോം ജോസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ തുടങ്ങിയവരും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും

കനത്ത മഴയിൽ ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ പ്രധാന റോഡുകൾ തകർന്നതിനാൽ മിക്കയിടത്തും കെ എസ്

സി ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട പത്തനംതിട്ട ജില്ലയിൽ ഒരാഴ്ചയിലധികമായി തുടരുന്ന മഴക്കെടുതിയിൽ മൂന്നുകോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായതായി കണക്കാക്കു ന്നു

ദുരിതബാധിതർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിൽപോലും പരാജയമുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു

രുമ്പ്പെട്ടിര സമകാലിക ഇന്ത്യയിൽ ഡോക്യുമെന്ററികൾ മതനിരപേക്ഷതാ ബോധ മാണ് ഉയർത്തിക്കാട്ടേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പതിനൊന്നാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള തിരുവന ന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വസ്തുതകളെ ധൈര്യ മായി അവതരിപ്പിക്കാൻ മതനിരപേക്ഷതാ ബോധം ഉള്ളവർക്കു മാത്രമേ സാധിക്കൂ ആനന്ദ് പട്വർധനെ പോലെ പ്രവർത്തിക്കുന്നവരെ മാതൃകയാ ക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രഥമ ലൈഫ്ടൈം അച്ചീവ്മെന്റ് പുര സ്കാരം ചടങ്ങിൽ ആനന്ദ് പട്വർധന് മുഖ്യമന്ത്രി സമ്മാനിച്ചു മന്ത്രി എ

ചൊവ്വാഴ്ച സ്മാപിക്കും രദേഷ്ടങ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയാക്കണമെന്ന ശുപാർശ സുപ്രീംകോടതി കൊളീ ജിയം വീണ്ടും കേന്ദ്രത്തിന് സമർപ്പിച്ചു

രുവെട്ടറു കോഴിക്കോട് കോടഞ്ചേരി ചാലിപ്പുഴയിൽ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷി പ്പിന്റെ സ്ലാലോം റെയ്സ് വിഭാഗത്തിൽ ഒളിംപിക് താരം ന്യൂസിലന്റിലെ മൈക്ഡോസൻ ജേതാവായി സ്പെയിനിലെ ഗർഡ് സെറാസോൾസ് രണ്ടാം സ്ഥാനവും യു

എയിലെ ഡെയിൻ ജാക്സൺ മൂന്നാംസ്ഥാനവും നേടി വനിതകളുടെ വിഭാഗത്തിൽ ഫ്രാൻസിന്റെ നൌറിയ ന്യൂമാൻ ഒന്നാംസ്ഥാനവും നെതർലാന്റ് സിന്റെ മാർട്ടിന വെഗ്മാൻ രണ്ടാംസ്ഥാനവും സ്വന്തമാക്കി ഇന്ന് പുരുഷ വനിതാ വിഭാഗത്തിൽ ബോട്ടോർ ക്രോസ് മത്സരം പുലിക്കയത്ത് ചാലി പ്പുഴയിൽ നടക്കും

ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് കേരള എന്ന പേരിൽ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് ആസ്തി കൈമാ റാൻ വ്യവസായ വകുപ്പ് റിയാബിനെ ചുമതലപ്പെടുത്തി

രണ്ടായിരത്തിലേറെ ചരക്ക് വാഹന ങ്ങളെത്തുന്ന വാളയാർ വഴി ഇന്നലെ അഞ്ഞൂറോളം വാഹനങ്ങൾ മാത്ര മാണ് സംസ്ഥാനത്തേക്ക് എത്തിയത് പാലക്കാട് ജില്ലയിലെ മറ്റ് അതിർത്തി ചെക്ക്പോസ്റ്റുകളിലും ചരക്ക് വാഹനങ്ങളുടെ വരവ് പകുതിയായി കുറഞ്ഞു

എസ് സുനിൽ കുമാർ ഇടുക്കിയിൽ പറഞ്ഞു

ഉച്ചയ്ക്ക് ഷോളയൂരിൽ മന്ത്രി കെ രാജു സംഗമം ഉദ്ഘാടനം ചെയ്യും രുവെട്ടിരു കർക്കിടക മാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്ന് രാത്രി പത്തിന് നട അടയ്ക്കും പതിവുപൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജക ട ളായ ഉദയാസ്തമന പൂജ സഹസ്ര കലശാഭിഷേകം കളഭാഭിഷേകം പടി പൂജ എന്നിവ ഇന്നുണ്ടാകും

എസ് സി പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ മാർക്ക് ലോക്കിംഗ് ഏർപ്പെടുത്തി ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കു മെന്ന് പി

സി അംഗം വി ശിവദാസൻ പാലക്കാട്ട് അറിയിച്ചു ജില്ലാ ഇ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എസ് ആർ

സി ഡിപ്പോ നവീകരണ പദ്ധതി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നേരിട്ട് വിലയിരുത്തി വികസന പ്രവർത്തന ങ്ങൾക്ക് രണ്ടുകോടി രൂപ അനുവദിച്ചിട്ടുണ്ട്

അറ്റ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട കാസർകോട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കും അസോസിയേഷൻ നൽകിയ പാസ് ഉള്ളവർക്കും മാത്രമേ സൌജന്യയാത്ര അനുവദിക്കൂ എന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അറി യിച്ചു